രണ്ട് സംസ്ഥാനങ്ങളിലും ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ്

ബോധത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ ജൽവാറിലും കേന്ദ്രമന്ത്രീം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ജെയ്പൂരിലെ വ്യൈജിലി നഗറിലും രാവിലെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു മികച്ച ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നല്ലി അ്വസരമാണ് വോട്ടെടുപ്പെന്നും ജനാധിപത്യം ശക്തിപ്പെട്ടുത്താൻ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്നും കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജസ്ഥാൻ തെലങ്കാന സംസ്ഥാനങ്ങളിലെ വോട്ടർമാരോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എല്ലാവരും പ്രത്യേകിച്ച് തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

ന്യൂഡൽഹിയിൽ ജാഗ്രൺ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വച്ജ് ഭാരത് ദൌത്യത്തിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമുള്ള പ്രചാരണത്തിൽ മാധ്യമങ്ങൾ ക്രിയാത്മകമായ പങ്കാണ് വഹിച്ചത്

ഇന്തൃയുടെ നിർമാണത്തിൽ നവമാധ്യമങ്ങൾക്ക് പുതിയ ശക്തമായ പിന്തുണ നൽകാനാകും പരിമിത ഗവൺമെന്റ് പരമാവധി നിർവ്വഹണം എല്ലാവർക്കുമൊപ്പം ഭരണ എല്ലാവരുടേയും വികസനം എന്നിവ പുതിയ ഇന്ത്യയുടെ ആധാര ഘടകങ്ങളാണ് ഗവൺമെന്റിന്റെ പല പദ്ധതികളും ജനങ്ങൾ അത്യുൽസാഹത്തോടെ ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് സുതാര്യതയും പ്രതിബദ്ധതയും ഉള്ള ഗവൺമെന്റിൽ ജനങ്ങൾക്ക് പൂർണ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കാര്യത്തിൽ ഇന്ത്യയുടെ ് നിലപാടും സമീപനവും തികച്ചും വൃക്തവും സുസ്ഥിരവുമാണെന്ന് വിദേശകാരൃ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു

ഇക്കാര്യത്തിൽ മാറ്റം വരുത്താനുള്ള പാകിസ്ഥാന്റെ ഏത് നീക്കവും നിയമവിരുദ്ധമാണ് അധിനിവേശ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ഒഴിഞ്ഞുപോകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു

രാജ്യസൂരക്ഷ കാത്തു സൂക്ഷിക്കുന്നതിനിടെ വീരമൃത്യു വരിച്ച വനിതകൾ ഉൾപ്പെടെയുള്ള ധീരയോദ്ധാക്കളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും ഡിസംബർ ഏഴ് സായുധസേനാ പതാക ദിനമായി ആചരിക്കുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സായുധസേനകൾ രക്ഷയ്ക്കായി എത്തുമെന്ന് പ്രതിരോധമന്ത്രി നിർമ്മല സീതാരാമൻ ടിറ്ററിൽ കുറിച്ചു ഈ മാസം ഒന്നാം തീയതി മുതൽ സായുധസേനാ വാരമായി ആചരിച്ച് വരികയാണ് സായുധസേനാ പതാകദിന ഫണ്ട് ശേഖരണത്തിൽ പങ്കുചേരണമെന്ന് കേന്ദ്രമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

ശബരിമലയിലുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്ഥലത്തെ സുരക്ഷ സംവിധാനങ്ങളും മറ്റ് ഒരുക്കങ്ങളും വിലയിരുത്താൻ ഹൈക്കോടതി മൂന്നംഗ സമിതിയെ നിയോഗിക്കാൻ ഉത്തരവിട്ടത്

സഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തുന്ന യു ഡി എഫ് എംഎൽഎ മാരുടെ പ്രശ്നം ഉന്നയിച്ച് സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം നിയമസഭയിൽ മുദ്രാവാകൃം മുഴക്കി സ്പീക്കറുടെ ഇരിപ്പിടത്തിന് നേരെ നീങ്ങി

ഇതിനിടെ ചോദ്യോത്ത്രവേള അവസാനിപ്പിച്ച് നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേയ്ക്ക് പിരിയുന്നതായി അറിയിച്ചു

ആദ്യദിനം പ്രധാന നൃത്ത ഇനങ്ങൾ മുതൽ നാടൻപാട്ട് വരെയുണ്ട്

വൈകിട്ട് ആറിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും

വിശദാംശങ്ങളുമായി കൃഷ്ണ

മ യൌ സുഡാനി ഫ്രം നൈജീരിയ എന്നീ മലയാള ചിത്രങ്ങളും മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

ഹൃദ്രോഗത്തെ തുടർന്ന് രാവിലെയായിരുന്നു അന്ത്യം

പുതിയ നയം കർഷകർക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി സൂരേഷ് പ്രഭു മന്ത്രിസഭാ യോഗത്തിന് ശേഷം ന്യൂഡൽഹിയിൽ പ്പിച്ചാർത്താ ലേഖകരോട് പറഞ്ഞു

ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ എണ്ണ വിയന്നയിൽ യോഗം ചേരുന്നതിനിടെയാണ് ഒപെക് ഊൌർജ്ജമന്ത്രി സൌദി ഖാലിദ് അല് ഫലിഹ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്

വിദേശകാരൃമന്ത്രി സുഷമാ സ്വരാജുമായി നാളെ കൂടിക്കാഴ്ച നടത്തും

സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ദേശീയ ക്സീൻ ഗംഗാ മിഷനാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി മുംബൈയിൽ പറഞ്ഞു